പ്രാദേശിക തലത്തിൽ കോവിഡ് തീവ്രബ്ബാധിത മേഖലകൾ കണ്ടെത്താൻ അടിയന്തിര നടപടി വ്യേണ്മെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം

രാജ്യത്തെ റെഡ് ഓറഞ്ച് ഗ്രീൻ മേഖലാ ജില്ലകളുടെ പുതുക്കിയ പട്ടിക ക്രിന്ദ്ര് പുറത്തിറക്കി കേരളത്തിൽ കണ്ണൂരും കോട്ടയവും റെഡ് സോണിൽ

ലോക് ഡൌണിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ റെയിൽവേ ശ്രമിക് പ്രത്യേക ട്രെയിൻ സർവ്വീസ് ആരംഭിച്ചു

ഇത് സംബന്ധിച്ച് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളും മൃത്താലയ്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്

ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇത് വേണ്ടതെന്ന് ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗൃ സെക്രട്ടറി പ്രീതി സുദൻ പറഞ്ഞു കോവിഡിന്റെ തീവ്രസാധ്യത മേഖലകൾ സൂചിപ്പിക്കുന്നതിനുള്ള രീതികളിലും മാറ്റമുണ്ട്

ഫീൽഡ് തലത്തിലെ വിലയിരുത്തലിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ മേഖലകൾ തീരുമാനിക്കാനാവും റെഡ് ഓറഞ്ച് മേഖലകളിൽ കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗൃ സെക്രട്ടറി ആവശ്യപ്പെട്ടു പ്രാദേശിക സാഹചര്യം വിലയിരുത്തി കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്

കേരളത്തിലെ കണ്ണൂർ കോട്ടയം ജില്ലകൾ റെഡ്സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

ശൈലജ അറിയിച്ചു

കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ നാല് പേരുടെ വീതവും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളുടെയും പരിശോധനാഫലമാണ് ഇന്ന് നെഗറ്റീവ് ആയത്

രാജൃത്ത് വിവിധ ജില്ലകളിൽ ഗണ്യമായ ഇളവ് മേയ് നാലിനുശേഷം ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

തലസ്ഥാന നഗരിയിൽ നിന്ന് അതിർത്തി കടന്നു വന്ന ആളുകളെയും വാഹനങ്ങളെയും തിരിച്ചയച്ചു

ഈ വിഷയം ഉന്നയിച്ച് രണ്ട് പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണെന്നും ലഭിച്ചാൽ അത് ലോകാരോഗൃസംഘടന തെളിവുകൾ പരിശോധിക്കുമെന്നും ഫാക്ട് ചെക്ക് വ്യക്തമാക്കി

ഒരു സ്ഥലത്തു നിന്ന് ലക്ഷ്യസ്ഥാനത്ത് വരെ മാത്രമായിരിക്കും യാത്ര ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് പൊതുമാർഗ്ഗരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർവ്വീസ് നടത്തുക പ്രത്യേക ട്രെയിനുകളുടെ സുഗമമായ യാത്രക്ക് റെയിൽവേയും സംസ്ഥാന സർക്കാരുകളും നോഡൽ ഓഫീസർമാരെ നിയമിച്ചു

കോവിഡ് രോഗലക്ഷണമില്ലെന്ന് ഉറപ്പാക്കിയ ്ശേഷം മാത്രമായിരിക്കും യാത്രയ്ക്ക് അനുമതി നൽകുക

രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്തർ സംസ്ഥാന അതിർത്തികളിൽ ട്രക്കുകളുടെ സ്വതന്ത്രമായ നീക്കം ഉറപ്പാക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു

റെഡ് ഗ്രീൻ സോണിൽ പുനക്രമീകരിക്കുന്നത് സംസ്ഥാനത്തെ വിദഗ്ധ സമിതി പരിശോധിക്കുമെന്ന് ശ്രീ

മടങ്ങാനാഗ്രഹിക്കുന്ന അതിഥി തൊഴിലാളികളിൽ തൊഴിൽ സുരക്ഷിതത്വമില്ലാത്തവർക്കായ്പിരിക്കണം മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു എല്ലാവർക്കും മന്ത്രി മെയ് ദിനാശംസ നേർന്നു

രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് രണ്ട് പ്രത്യേക ട്രെയിനുകൾ ഇന്നു രാത്രി ജാർഖണ്ഡിലേക്ക് തിരിക്കും

ഭീകര സംഘങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ ഇത് ദുരുപയോഗം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു

കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ നേരത്തെ വോട്ടെടുപ്പ് മാറ്റിവച്ചിരുന്നു